വിജയം

പുതിയ ലോക്സഭയുടെ ആദ്യസമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം പി മാരുടെ സത്യപ്രതിജ്ഞ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നന്ദിപ്രമേയ ചർച്ച ധനകാര്യ ബജറ്റ് ചർച്ച എന്നിവ നടക്കും

സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റെന്നാൾ നടക്കും

ന്യൂഡൽഹിയിൽ നടന്ന എൻ

എ യോഗത്തിനുശേഷം ട്ടിറ്ററിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത്

ഇന്ന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്തു

ജെ പി പാർലമെന്ററി പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മറ്റി യോഗവും ഇതോടൊപ്പം ചേർന്നു

പാർലമെന്റ് സമ്മേളനം സുഗമമായുംസംയുക്തമായും നടപ്പാക്കുന്നതിനായി ഗവൺമെന്റിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കണമെന്ന് വിവിധ പാർട്ടി നേതാക്കളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചുരാഷ്ട്രീയ അഭിപ്രായഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാ പാർട്ടികളും ദേശപുരോഗതിയുടെ പാതയിൽ അക്ഷീണം പ്രവർത്തിക്കാൻ സ്വയം സജ്ജരാകണമെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു

പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സംഘടന വാർത്താ കുറിപ്പിൽ അറിയിച്ചു ഒരു റിപ്പോർട്ട്

അത്യാഹിത വിഭാഗം ഒഴികെയുള്ള സേവനങ്ങളൊന്നും ലഭിക്കില്ല ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ആശുപത്രികൾക്കു നേരെയുണ്ടാകുന്ന അക്രമം നേരിടാൻ സമഗ്രമായ കേന്ദ്ര നിയമം വേണമെന്നാണ് ഐ

കേരളത്തിലെ ഡോക്ടർമാരും സമരത്തിൽ പങ്കാളികളാകുമെന്ന് സംഘടന അറിയിച്ചു

എം ഒ യുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഡോക്ടർമാർ രാവിലെ പത്തുവരെ ഒ പി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടർമാരും സമരത്തിൽ പങ്കാളികളാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ബംഗാളിൽ സമരം നടത്തുന്ന ഡേക്ടർമാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഇന്ന് ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗ സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം

കൊൽക്കത്തയിലെ എൻ

എസ് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് ഡോക്ടർമാർക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടിവന്നതിനെ തുടർന്നാണ് ബംഗാളിൽ സമരം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹുറിയത് കോൺഫറൻസ് അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വെളിപ്പെട്ടത്

ദുക്തറൻ ഇ മിലറ്റ് എന്ന സംഘടനയുടെ നേതാവായ ഐഷ ആൻദ്രാബിയുടെ മകന്റെ മലേഷ്യയിലുള്ള പഠനത്തിന്റെ ചെലവ് വഹിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായ വിഘടനവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഭീകരപ്രവർത്തനത്തിന് അറസ്റ്റിലായവർക്ക് അടക്കം പണം കൈമാറ്റവുമായി ബന്ധമുണ്ട്

വെടിവെപ്പിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ രണ്ട് പേർക്ക് പരിക്കേറ്റു

ഇന്ത്യൻ സൈന്യം തിരിച്ചും വെടിയുതിർത്തു

സെഞ്ചറി മികവുമായി രോഹിത് ശർമ്മ കളിയിലെ കേമനായി കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫൈനലിൽ ചൈനീസ് ടീമിനോടാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്

എറണാകുളം രണ്ടാമതായി പാലക്കാടിനാണ് മുന്നാം സ്ഥാനം മീറ്റിലാകെ നാല് റെക്കോഡുകൾ പിറന്നു മൂന്ന് താരങ്ങൾ ഇരട്ട സ്വർണം നേടി

പ്രി്ട്രോനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പ്രധാന ചടങ്ങ് നടക്കുന്നത് റാഞ്ചിയിലാണ് പ്രമുഖ വ്യക്തികൾ യോഗാചാര്യൻമാർ യോഗ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ മുപ്പതിനായിലത്തിലേറെ പേർ ചടങ്ങിൽ പങ്കെടുക്കും യോഗയുടെ പ്രചാരത്തിനായി പരിശ്രമിച്ചവർക്ക് പ്രധാനമന്ത്രി പുരസ്കാരങ്ങളും വിതരണം ചെയ്യും

ഡൽഹിയിൽ രാജ്പുത്തിലും യോഗയുമായി ബന്ധപ്പെട്ട് പ്രധാനപരിപാടി സംഘടിപ്പിക്കും

വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള തീവ്രശ്രമം അധികൃതർ നടത്തിയെങ്കിലും അർജന്റീനയിലെ അഞ്ചു ലക്ഷം ജനങ്ങൾക്കു മാത്രമാണ് വൈദ്യുതി വിതരണം പുനസ്ഥാപിച്ച് നൽകാനായത് വൈദ്യുതി വിതരണ സംവിധാനത്തിനുണ്ടായ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നതായി ഉറുഗ്വേ അധികൃതർ അറിയിച്ചു

കടൽ പ്രക്ഷുബ്ധമായ തീരങ്ങളയൽ വിനോദ സഞ്ചാരം ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്

തുടർന്ന് കാലവർഷക്കാറ്റ് അറേബ്യൻ കടലിലേയ്ക്ക് നീങ്ങുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിലെ മുതിർന്ന ശാസ്ത്രജ്ഞ കെ

ഗുജറാത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിലേയ്ക്ക് ചുഴലിക്കാറ്റ് നീങ്ങുകയാണെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

വളങ്ങളുടെ ആവശ്യകത ഏറ്റവും കൂടുതലുളള സമയങ്ങളിൽ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി കരുതൽ ശേഖരം നിർമ്മിക്കുന്നതിനുളള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു